എം ബഷീറിന്റെ മൃതദേഹം പുലർച്ചെ കോഴി ക്കോട് ചെറുവണ്ണൂരിൽ കബറടക്കി

തൃശൂർ രാമവർമ്മപുരം പൊലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ രണ്ടാമത് വനിതാ പൊലീസ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഓണം ബക്രീദ് കാലയള വിൽ ഓണം ഫെയറുകളും ബക്രീദ് ചന്തകളും സംഘടിപ്പിക്കും

ബഷീറിന്റെ മൃത ദേഹം ഇന്ന് പുലർച്ചെ കോഴിക്കോട് ചെറുവണ്ണൂർ കണ്ടില ത്താഴെ മഖാമിൽ കബറടക്കി പുലർച്ചെയോടെയാണ് മൃത ദേഹം കോഴിക്കോട്ട് എത്തിച്ചത് സിറാജ് ഓഫീസിൽ പൊതു ദർശനത്തിനുവെച്ച മൃതദേഹത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് കമാൽ വരദൂർ ജന റൽ സെക്രട്ടറി സി നാരായണൻ തുടങ്ങിയവർ അന്തിമോപ ചാരമർപ്പിച്ചു സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട നിരവധി പേർ കബറടക്കത്തിന് സാക്ഷികളായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകൻ കെ

ചികിത്സ യിൽ കഴിയുന്ന സ്ഥകാര്യ ആശുപത്രിയിൽ എത്തിയാണ് മജിസ്ട്രേറ്റ് റിമാൻഡ് രേഖപ്പെടുത്തിയത് ജാമ്യമില്ലാ കുറ്റ ങ്ങളായ കൊലപാതകമല്ലാത്ത നരഹത്യ മദ്യപിച്ച് അപകട കരമായ തരത്തിൽ വാഹനമോടിക്കൽ എന്നിവ ശ്രീറാമി നെ തിരെ ചുമത്തിയിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന സുഹൃത്തായ മോഡൽ വഫ ഫിറോസിനെതിരെയും പൊലീസ് കേസെടുത്തു

ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു

അപകടസമയത്ത് ശ്രീറാം മദ്യലഹരിയിലായിരുന്നുവെ ന്നാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയത് തൃശൂർ രാമവർമ്മപുരം കേരള പൊലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ രണ്ടാമത് വനിതാ പൊലീസ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും

കമാൻഡോ തീരദേശ പരിശ്രീലനങ്ങളും ഇവർക്ക് നൽകി യിട്ടുണ്ട് സംസ്ഥാനത്ത് ഓണം ബ്രക്രീദ് കാലയളവിൽ സപ്ലൈ കോയും കൺസ്യൂമർ ഫെഡും മറ്റ് ഏജൻസികളും പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഉത്സവകാലത്തെ കരി ഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൃത്രിമ വിലക്കയറ്റവും തടയാ നാണ് നടപടി

ഹോർട്ടി കോർപ്പ് പഴം പച്ചുക്കറി വികസന കൌൺസിൽ ഹാൻടെക്സ് ഹാൻവീവ് മത്സ്യഫെഡ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കയർഫെഡ് വനശ്രീ വനിതാ വികസന കോർപ്പറേഷൻ എന്നിവയുടെ സ്റ്റോളുകളും ഓണം ഫെയറിൽ ഉണ്ടായിരി ക്കും

ഇതിന്റെ ഭാഗമായി പച്ചക്കറി വിൽപ്പനയ്ക്ക് പ്രത്യേക കൌണ്ടറുകളും ഒരുക്കും ഓരോ നിയോജകമണ്ഡലത്തിലും ഓരോ ഓണം ഫെയറെങ്കിലും ഉറപ്പ് വരുത്താനാണ് തീരുമാനം

ബക്രീദ് ചന്തകൾ അടുത്ത ബുധ നാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ പ്രവർത്തിക്കും

ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കേരള ത്തിന്റെ വിയോജിപ്പ് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുമെന്ന് മന്ത്രി ഡോ

ടി ജലീൽ മലപ്പുറത്ത് പറഞ്ഞു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടത്തിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്ത് എങ്ങനെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആശങ്കാജനകമായ ചില നിർദ്ദേ ശങ്ങൾ കരട് വിദ്യാഭ്യാസ നയത്തിലുണ്ടെന്ന് അദ്ദേഹം അഭി പ്രായപ്പെട്ടു പണം കൊടുത്ത് ആർജ്ജിക്കേണ്ട വാണിജ്യവ സ്തുവെന്ന രൂപത്തിലാണ് നയത്തിലെ പല നിർദ്ദേശങ്ങളു മെന്നും മന്ത്രി വിലയിരുത്തി ദേശീയ മെഡിക്കൽ കമ്മീ ഷൻ ബില്ലി നെ തിരെ ഡോക്ടർമാരുടെയും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിക ളുടെയും സമരം രാജ്യവ്യാപകമായി തുടരുന്നു ഭാവി സമരപരിപാടികൾക്ക് രൂപം നൽകാൻ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ യോഗം ഡൽഹി യിൽ ചേരും ഡൽഹിയിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർ ഉടൻ ജോലിയിൽ തിരികെ കയറിയില്ലെങ്കിൽ കടുത്ത നട പടിയുണ്ടാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് അടക്കം മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ റിലേ നിരാഹാര സമരം തുടരുകയാണ് മന്ത്രിയായാലും സാമാജികരായാലും പാർട്ടിയുടെ അടി ത്തട്ടിലെ പ്രവർത്തകരെപ്പോലെ എപ്പോഴും സജീവമാകണ മെന്ന് ബി ജെ പി എം പിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി

ജെ പി എം പിമാർക്കായി ഡൽഹിയിൽ സംഘടിപ്പിച്ച രണ്ടുദിവസത്തെ പരിശീലന പരിപാടി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പാർലമെന്റിന് അകത്തും പുറത്തും എം പിമാർ എങ്ങനെ പെരുമാറണമെ ന്നും പൊതുപ്രവർത്തനത്തിൽ എങ്ങനെ ഇടപെടണമെന്നും പരിശീലിപ്പിക്കാനാണ് അഭ്യാസ് വർഗ സംഘടിപ്പിച്ചത് പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ പാർട്ടി വർക്കിംഗ് പ്രസി ഡന്റ് ജെ പി നദ്ദ തുടങ്ങിയവരും എം പിമാരുമായി സംവദി ച്ചു ജമ്മു കശ്മീരിലെ ബാരാമുള്ളയിലും ഷോപ്പിയാനിലും ജയ്ഷ് ഇ മുഹമ്മദ് കമാൻഡറടക്കം നാല് ഭീകരരെ സുര ക്ഷാസേന വധിച്ചു കൊല്ലപ്പെട്ടവരെല്ലാം നിരവധി കേസുക ളിൽ പ്രതികളാണെന്ന് സേന അറിയിച്ചു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉന്നാവ് പെൺകുട്ടിയുടെ നില് അതീവ ഗുരുതരമായി തുട രുന്നു വെന്റിലേറ്ററിൽ കഴിയുന്ന പെൺകുട്ടിക്ക് ന്യൂമോണിയ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്

ഫ്ളോറിഡയിൽ നാല് വിക്കറ്റിനാണ് ടീം ഇന്ത്യ വിൻഡീസിനെ തോൽപ്പിച്ചത്

ഡ്യൂറാന്റ് കപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ റെഡ് ആർമിയെ പരാജയപ്പെടുത്തി കൊൽക്കത്തയിൽ ഏകപ ക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിന്റെ വിജയം കൊച്ചിയിൽ സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ടീമുകൾ കാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു ക്വാർട്ടറിൽ എറ ണാകുളം പാലക്കാടിനെയും മലപ്പുറം തൃശൂരിനെയും നേരി ടും കണ്ണൂർ വളപട്ടണം പുഴയോരത്തെ പ്ലൈവുഡ് വൃവസായ ശാലകളെ സംരക്ഷിക്കുമെന്ന് മന്ത്രി ഇ

പുഴയോരം കൈയേറി ഉപയോഗിക്കുകയാണെന്ന് കാണിച്ച് പഞ്ചായത്തുകൾ കമ്പനികൾക്ക് നോട്ടീസ് നൽകിയ സാഹച ര്യത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി വളപട്ടണം പുഴയോരം ഉൾപ്പെടുന്ന ചിറയ്ക്കൽ പാപ്പിനിശ്ശേ രി പുഴാതി പഞ്ചായത്തുകളിൽ തടി കൊണ്ടുവരാനും സൂക്ഷി ക്കാനും പുഴയും പുഴയോരവും ഉപയോഗിക്കുന്ന തൽസ്ഥിതി തുടരാനും മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിവാഹപൂർവ്വ കൌൺസിലിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് മന്ത്രി ഡോ

സംസ്ഥാനത്തെ വിവാഹ മോചനങ്ങളും വിവാഹിതർക്കിടയിലെ തർക്കങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി മലപ്പുറം വളാഞ്ചേരിയിൽ വിവാഹപൂർവ്വ കൌൺസലിംഗ് കേന്ദ്രങ്ങ ളിലെ പരിശീലകർക്കായി ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് സംഘ ടിപ്പിച്ച രണ്ടുദിവസത്തെ പരിശീലന കൃാമ്പ് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി ന്യൂനപക്ഷ യുവജനങ്ങൾക്കായി വിവാ ഹശേഷ കൃാമ്പുകൾകൂടി സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറി യിച്ചു കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ രണ്ടുദിവസ്മങ്ങളിലെ ചുഴലി ക്കാറ്റിൽ നാശനഷ്ടം നേരിട്ടവർക്ക് അടിയന്തിര നഷ്ടപരി ഹാരം നൽകണമെന്ന് സി

എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആവശ്യപ്പെട്ടു ജില്ലയിൽ ഇന്നുമുതൽ നാല് ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്നാണ് വിലയിരു ത്തൽ കോഴിക്കോട് കാരശ്ശേരിയിൽ ആസിഡ് ആക്രമണത്തിലും കത്തിക്കുത്തിലും പരിക്കേറ്റ യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു

ഇന്നലെ വൈകിട്ടാണ് കാരശ്ശേരി സ്വദേശി സ്വപ്നയ്ക്കുനേരെ ആക്രമണമുണ്ടായത് ചേർത്തല മുഹമ്മയിൽ കയർ ഫാക്ടറിക്ക് തീപിടിച്ച് ഒരുകോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു

ഫയർ ഫോഴ്സും നാട്ടുകാരും നാലുമണിക്കൂറോളം ശ്രമിച്ചാണ് തീയണച്ചത്

സി മൊയ്തീന്റെ സാന്നിധ്യ ത്തിലായിരുന്നു അദാലത്ത് കോഴിക്കോട്ട് മാളിലെ സൂപ്പർമാർക്കറ്റിൽ മോഷണം ആരോപിച്ച് ഐ ഐ ടി പ്രൊഫസറെ മർദ്ദിച്ച കേസിൽ ഒളി വിലായ രണ്ടുപേർക്കുവേണ്ടി അന്വേഷണം ഊർജ്ജിതമാ ക്കി

പി സ്വദേശിയും ഗൊരഖ്പൂർ ഐ ഐ ടിയിലെ പ്രൊഫസറുമായ പ്രശാന്ത് ഗുപ്തയ്ക്കാണ് മാളിൽ മർദ്ദന മേറ്റത് സംഭവത്തോട് ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ സംഘടനകൾ ഇന്നലെ മാളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെ നിശ്ശബ്ദരാക്കുന്ന കരിനിയമങ്ങളാണ് കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നതെന്ന് ഡി

എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം കുറ്റപ്പെ ടുത്തി വയനാട് ജില്ലയിൽ യുവജന ജാഥയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുകയാ ണെന്നും റഹിം ആരോപിച്ചു സംഗീതത്തിന് സ്നേഹം മാത്രമാണ് മതമെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ അഭിപ്രായപ്പെട്ടു കണ്ണൂരിൽ ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച ഉമ്പായി അനുസ്മരണ പരിപ്പാടിയും ഗസൽ സന്ധ്യയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പത്മനാഭൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നും നിയന്ത്രണം ഡാം സുരക്ഷാ അതോറിറ്റിക്ക് നൽകണമെന്നും ഡീൻ കുര്യാക്കോസ് എം പി ലോക്സഭയിൽ ആവശ്യപ്പെ ട്ടു ഡാം സുരക്ഷാ ബില്ലിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിലെ കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുനേരെയായി രുന്നു ആനക്കൂട്ടം ആക്രമണം നടത്തിയത് റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസർ കോഴിക്കോട് കുതി രവട്ടം പാലപ്പറമ്പ് എ മജീദ് നിര്യാതനായി

കബറടക്കം രാവിലെ കണ്ണംപറമ്പ് കബർസ്ഥാനിൽ നട ത്തും കണ്ണൂർ എടക്കാട് കൌൺസിലർ ടി

സംസ്കാരം വൈകിട്ട് എടക്കാട് മാളികപ്പറമ്പ് പൊതുശ്മശാനത്തിൽ നടക്കും